നാല് ജില്ലകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ്

എസ് എൽ ഫുട്ബോളിൽ എ ടി കെ മോഹൻബഗാൻ ഹൈദരബാദ് എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന നാല് ജില്ലകളിൽ വൈകിട്ട് പരസ്യ പ്രചാരണം അവസാനിക്കും കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ്

സുരേന്ദ്രൻ സുരേഷ്ഗോപി എം പി തുടങ്ങിയവർ കോഴിക്കോട് ജില്ലയിലും ഇന്ന് അവസാനവട്ട പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകും

കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കലാശക്കൊട്ട് ഒഴിവാക്കാൻ ധാരണയായിട്ടുണ്ട് കാസർകോട് നിയന്ത്രണങ്ങളോടെയായിരിക്കും പ്രചാരണത്തിന്റെ സമാപനം തിങ്കളാഴ്ചത്തെ തദ്ദേശ വോട്ടെടുപ്പോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാവും

ആലപ്പുഴ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ഒരു പോളിംഗ് സ്റ്റേഷനിൽ റീം പോളിംഗ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു കാട്ടൂർ കിഴക്ക് വാർഡിൽ സർവ്വോദയപുരം കയർമാറ്റ് സൊസൈറ്റി ഹാളിലെ രണ്ടാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടെടുപ്പാണ് അസാധുവാക്കിയത് വോട്ടിംഗ് യന്ത്രത്തിലെ സാങ്കേതിക പ്രശ്നം മൂലം വോട്ടെണ്ണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നടപടി മറ്റന്നാൾ ബൂത്തിൽ റീ പോളിംഗ് നടത്തും രും ഡിസംബർ എട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം പതിച്ച മാസ്ക് ധരിച്ചെത്തിയ ഉദ്യോഗസ്ഥയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു കൊല്ലം കൊറ്റങ്കര കുളശ്ശേരി ഒന്നാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കെത്തിയ കെ സരസ്വതിയാണ് സസ്പെൻഷനിലായത് കൊല്ലം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി രും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ കോവിഡ് പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ അന്തിമഘട്ടത്തിലെത്തി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകൾ അണുവിമുക്തമാക്കി

രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചും ബൂത്തുകളും പരിസരങ്ങളും നിരീക്ഷിക്കും രംഭ കണ്ണൂർ ജില്ലയിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കലക്ടർ അറിയിച്ചു

കമാൻഡോകൾ ഉൾപ്പെടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും കലക്ടർ അറിയിച്ചു

മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗബാധാ നിരക്ക്

രുഭ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നുമുതൽ ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു ദേവസ്വം ജീവനക്കാരിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ക്ഷേത്രത്തിലെ പൂജകൾ മുടക്കമില്ലാതെ നടക്കും വിവാഹം വഴിപാടുകൾ പ്രസാദ് വിതരണം എന്നിവ ഉണ്ടാകില്ല

ദേവസ്വത്തിലെ മൂവായിരത്തോളം ജീവനക്കാരെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു

പോകാനാഗ്രഹിക്കുന്നവർ തുടർന്നും ഇ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ കലക്ടർ എച്ച്

തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ ചെക്ക്പോസ്റ്റുകളിലൂടെയും അവിടേക്ക് പോകാൻ ഇ രജിസ്ട്രേഷൻ നിർബന്ധമാണ് രംഭ അടുത്തകാലത്ത് കേട്ട ഏറ്റവും നല്ല വാർത്തയാണ് കോവിഡ് വാക്സിൻ കണ്ടെത്തിയെന്ന വിവരമെന്ന് നയതന്ത്രജ്ഞനും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സമിതി മേധാവിയുമായ ടി പി ശ്രീനിവാസൻ ആകാശവാണിയോട്

കാലാവസ്ഥാ വ്യതിനായത്തിന് കാരണമാകുന്നില്ലെങ്കിലും ഉത്തരവാദപ്പെട്ട ആഗോളശക്തിയെന്ന നിലയിൽ ഇന്ത്യ ഇതിനെതിരായ പോരാട്ടത്തിൽ അണിചേരുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെപ്പറ്റി ചടങ്ങിൽ സംസാരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു പ്രചോദിത ഇന്ത്യ എന്ന ആശയത്തിലൂന്നിയാണ് ഈ വർഷത്തെ വാർഷിക യോഗം

യെ നേരിടും രുര ലഭിക്കുന്ന രഹസ്യ വിവരത്തിന്റെ കൃത്യത ഉറപ്പാക്കി മാത്രമേ ഒരാളുടെ വീട്ടിലും പരിസരത്തും പൊലീസ് പരിശോധനകളും അന്വേഷണങ്ങളും നടത്താവൂ എന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു വിവാഹ നിശ്ചയംപോലെ മഗള കർമ്മങ്ങൾ കഴിഞ്ഞിരിക്കുന്ന വീട്ടിൽ ഇത്തരം രഹസ്യ വിവരങ്ങൾ വൈരാഗ്യം തീർക്കാനുള്ള ഉപാധിയായി പലരും ഉപയോഗിക്കാറുണ്ടെന്ന് കമ്മീഷൻ വിലയിരുത്തി സേനാപതി സ്വദേശി സിജി

ആർ സമർപ്പിച്ച പരാതിയിലാണ് നടപടി രുര നെടുമ്പാശ്ശേരിയിൽ കാറിന് പിന്നിൽ വളർത്തുനായയെ കെട്ടിവലിച്ച സംഭവത്തിൽ കെ കെ യൂസഫ് എന്നയാളെ പൊലീസ് അറസ്റ്റ് ചെയ്തു നായയെ ഉപേക്ഷിക്കുന്നതിനായി കാറിൽ കെട്ടിവലിച്ച് കൊണ്ടുപോവുകയായിരുന്നു യൂസഫ് സാരമായി പരിക്കേറ്റ നായയെ മൃഗക്ഷേമ സംഘടനയായ ദയ ഏറ്റെടുത്തു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെത്തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് കാർ കസ്റ്റഡിയിലെടുത്ത് പൊലീസ് കൈമാറി വാഹന ഉടമയുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെ നടപടികൾ വകുപ്പ് സ്വീകരിക്കും രുര മുവാറ്റുപുഴയ്ക്കടുത്ത് മണ്ണൂർ കുന്നത്തോണി കവലയിൽ ഇന്നലെ വൈകിട്ട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു

രുമ കോട്ടയം കുടമാളൂരിൽ പാചക വാതകത്തിന് തീ പിടിച്ച് വേളൂർ അമ്പാടി വിളക്കുമാടത്ത് ടി

കോഴഞ്ചേരി കുഴിക്കാല സി എം എസ് ഹയർ സെക്കണ്ടറി സ്കൂൾ റിട്ടയേഡ് പ്രിൻസിപ്പലാണ് രും മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ ഭാരതപ്പുഴയുടെ മേഖലയിൽ ഇന്നലെ വൈകിട്ട് നേരിയ ഭൂചലനം ഉണ്ടായതായി ഭൌമശാസ്ത്ര വകുപ്പ് സ്ഥിരീകരിച്ചു

രംഭ സൌരോർജ്ജം ഡിജിറ്റൽ ടെക്നോളജി എന്നിവയടക്കം മേഖലകളിൽ ഇന്ത്യയും ഉസ്ബക്കിസ്ഥാനും ഒൻപത് കരാറുകളിലും ധാരണാപത്രത്തിലും ഒപ്പിട്ടു